കുടിയേറ്റത്തൊഴിലാളികളുടെയും ക്ഷേമം ഉറപ്പു വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരുന്ദ്രമോദി

ട്രെയിൻ ഇന്ന് പുലർച്ചെയോടെ തിരുവനന്തപുരത്ത് എത്തി

നാളെ ആരംഭിക്കും

എല്ലാവരുടെയും വികസനമെന്ന ലക്ഷ്യം സാധ്യമാക്കുന്ന ദരിദ്രരുടെയും തൊഴിലാളികളുടെയും മദ്ധ്യവർഗ്ഗ കർഷകരുടെയും സമൂഹത്തിന്റെയും പ്രതീക്ഷകൾക്കൊത്തുയർന്ന പദ്ധതികൾക്ക് ആഭൃന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നന്ദി അറിയിച്ചു കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്തു

ഒരു രാജ്യം ഒരു റേഷൻകാർഡ് പദ്ധതി ശരിയായ ദിശയിലുള്ള ചുവടുവയ്പാണെന്നും കുടിയേറ്റ തൊഴിലാളികൾക്ക് റേഷൻ നല്കാനുള്ള തീരുമാനം പ്രശംസാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു

റേഷൻ കാർഡ് ഇല്ലത്ത കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇത്തിന് അർഹതയുണ്ട് കുടിയേറ്റ തൊഴിലാളികൾക്കും പ്പ്പ്പെട്ടവർക്കും മിതമായ നിരക്കിൽ വാടകയ്ക്ക് തൃാമസിക്കാനുള്ള വീടുകൾ നിർമിക്കാനുള്ള പദ്ധതിയിട്ടും കേന്ദ്ര സർക്കാർ ആരംഭിക്കും

വഴിയോര കച്ചവടക്കാർക്ക് ലോക്ഡൌണിനു ശേഷം കച്ചുവടം പുനരാരംഭിക്കുന്നതിനായി ഒരു മാസത്തിനുള്ളിൽ പ്രത്യേക വായ്പാ പദ്ധതി നടപ്പാക്കും

ന്യൂസ്ഡസ്ക് ആകാശവാണി

മത്സ്യതൊഴിലാളികളെയും കന്നുകാലി പരിപാലനം നടത്തുന്ന കർഷകരെയും പദ്ധതിയിലുൾപ്പെടുത്തും

ഈ പലിശ ഇളവ് നേരത്തെ മാർച്ച് ഒന്നു വരെയായിരുന്നു മൂന്നു കോടി കർഷകരുടെ വായ്പകൾക്ക് നേരത്തേ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നതായും ധനമന്ത്രി പറഞ്ഞു

രണ്ടു രാജ്യങ്ങളുടെയും കോവിഡ്പ്പിച്ചതിരോധ നടപടികൾ ഇരുവരും വിലയിരുത്തി

മുഴുവൻ യാത്രക്കാരെയും ആരോഗ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്നലെ രാത്രിയോടെ ട്രെയിൻ കോഴിക്കോട്ടും പുർച്ചെ രണ്ടോടെ എറണാകുളത്തും എത്തി

സമുദ്രസേതു ദൌത്യത്തിന്റെ ഭാഗമായുള്ള ജലാശ്വയുടെ രണ്ടാം യാത്രയാണ് ഇത് മാലിദ്വീപിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത പൌരന്മാർക്കാണ് കപ്പലിൽ പ്രവേശനാനുമതിയുള്ളത്

എസ്

എസ് മഗർ എന്നീ ിന്റാവിക കപ്പലുകൾ

മൂന്ന് പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത്

ബി എസ്